ന്യൂനമർദമായി നാളെ കേരളത്തിൽ പ്രവേശിക്കാൻ സാധൃത തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലൂടെയാവും ചുഴ്ലീക്കാറ്റ് സഞ്ചരിക്കുക

മഴയ്ക്ക് സാധൃത വിവിധ് ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു

സ്ഥിരീകരിച്ചു

എ

ബന്ധപ്പെട്ട ദുർവ്യാഖ്യാനങ്ങൾ നിർഭാഗൃകരമെന്ന് സ്പീക്കറുടെ ഓഫീസ്

മുന്നൊരുക്കങ്ങളുമായി സംസ്ഥാന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ

സംഘടനകളുടെ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രിമാരുടെ സമിതി നാലാംഘട്ട ചർച്ചകൾ നടത്തുന്നു

ഇന്ന് അർദ്ധരാത്രിയോടെയോ നാളെ പുലർച്ചയോടെയോ ആവും ചുഴലിക്കാറ്റ് തെക്കൻ തമിഴ്നാട്ടിലെത്തുക

ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ഇന്നും ന്ട്ളെടും അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയൂട്ടെണ്ട്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകി

ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു

വിവിധ ജില്ലകളിലെ അപകട സാധൃതയുള്ള പ്രദേശങ്ങളിൽ ദേശീയ ദുരന്ത നി്വാരണ സേനാ സംഘങ്ങൾ സന്ദർശനം നടത്തി

കേരളത്തിന്റെ പ്രിയ്യാറെടുപ്പുകൾ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ടെന്നും മുഖൃമൂന്ത്രി പറഞ്ഞു ചുഴലിക്കാറ്റ് സ്ഥലങ്ങൾ തിരുവനന്തപുരം താലൂക്ക് പരിധിയിലും ചിറയിൻകീഴ് വർക്കല നെയ്യാറ്റിൻകര കാട്ടാക്കട നെടുമങ്ങാട് എന്നിവിടങ്ങളിലായാണ് തിരുവന്തപുരം ജില്ലയിൽ ക്യാമ്പുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്

ഇടുക്കിയിൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചു കൊല്ലത്ത് മൺട്രോത്തുരുത്തിലും കരുനാഗപ്പള്ളി പരവൂർ എന്നിവിടങ്ങളിലെ തീരമേഖലകളിലും എൻ ഡി

എഫ് സന്ദർശനം നടത്തി

ആലപ്പുഴയിൽ എൻ ഡി ആർ എഫ് സംഘം അമ്പലപ്പുഴ താലൂക്കിലെ വണ്ടാനം മുതൽ പുറക്കാട് അയ്യൻകോയിക്കൽ കടപ്പുറം വരെ സന്ദർശിച്ചു ഇടുക്കിയിൽ എൻ

ആർ

പത്തനംതിട്ട ജില്ലയിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ ബോർഡുകൾ ഹോർഡിംഗുകൾ എന്നിവ നീക്കം ചെയ്യാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി

മാറ്റി പാർപ്പിക്കും ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ പൊൻമുടിയിലെ ലയങ്ങളിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികളെ വിതുരയിലുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു

ടി സി ബസുകളിലാണ് ഇവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത് കൊല്ലം കളക്ടർ ചുഴലിക്കാറ്റുമായി ബന്ധ്പ്പെട്ട് അടിയന്തര സാഹചര്യമുണ്ടായാൽ അതിജീവിക്കാൻ ക്രമീകരണങ്ങൾ സജ്ജമാക്കിയതായി കൊല്ലം ജില്ലാ കളക്ടർ ബി

ദൂരയാത്രകളും മലയോര യാത്രകളും ഒഴിവാക്കണമെന്നും കളകൂർ നിർദേശിച്ചു ഇടുക്കി കളക്ടർ ബുറെവി ചുഴലിക്കാറ്റ് നേരിടാൻ ഇടുക്കി ജില്ലയിൽ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചതായി ഇടുക്കി ജില്ലാ കളക്ടർ എച്ച്

പീരുമേട്ടിലെ തോട്ടം മേഖലയിൽ ദുർബലമായ ലയങ്ങളിൽ കഴിയുന്നവരെ സുരക്ഷിതസ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ മേഖലയിലെ തഹസീൽദാർമാർക്ക് നിർദ്ദേശം നൽകി

ശൈജല ബുറേവി ചുഴലിക്കാറ്റ് മുൻ്ടിയിപ്പിനെ തുടർന്ന് ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദേശം ക് പ്യൂർപ്പെടുവിച്ചതായി ആരോഗൃ മന്ത്രി കെ

്ചുഴലിക്കാറ്റും മഴയും മൂലമുണ്ടാ കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ് പിന്നീടുണ്ടാകുന്ന പകർച്ചവ്യാധികളും ഫലപ്രദമായി നേരിടാനാണ് ജാഗ്രതാ നിർദേശം പുറപ്പെടുവിച്ചത്

ബി കൺട്രോൾറൂം ബുറേവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ വൈദ്യുതിമേഖലയുമായി ബന്ധപ്പെട്ട അടിയന്തിര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി കെ എസ് ഇ

ഏതു അടിയന്തിര സാഹചര്യങ്ങളും നേരിടുന്നതിന് പൂർണ്ണസജ്ജമാണെന്നും കെ എസ്

ദുരന്ത നിപ്പാർണ് പ്രവർത്തനങ്ങൾക്കായി പോലീസ് ഫയർ ഫോഴ്സ് കൃഷ്ണിവ ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെ പ്രതിനിധികളും ്വോള്ണ്ടിയേൾസും ഉൾപ്പെട്ട മൂന്ന് യൂണിറ്റുകൾ തയ്യാറാക്കി പ്പെരിങ്ങ്മലമടത്തറ പാലോട് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ വിന്യസിക്കാൻ യോഗത്തിൽ തീരുമാനമായി

മലപ്പുറം തൃശ്ശൂർ കോഴിക്കോട് ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധിതരുളളത്

ജി റിപ്പോർട്ടിലെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ദുർവ്യാഖ്യാനങ്ങളും കുപ്രചരണങ്ങളും തികച്ചും നിർഭാഗൃകരമാണെന്ന് സ്പീക്കറുടെ ഓഫീസ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്ത് വിട്ടത് സംബന്ധിച്ച് വി

സതീശൻ എം എൽ

മന്ത്രി ഉന്നയിച്ചു കാണാതിരിക്കാനാവില്ലെന്നും ഈ പ്രശ്നത്തെ യാന്ത്രികമായി സമീപിക്കാനാവില്ലെന്നും സ്പീക്കറുടെ ഓഫീസ് വിശദീകരിച്ചു

നിലവിലെ നടത്തിപ്പിന് കൂടുതല്പൂയി ആവശ്യമുള്ള സജ്ജീകരണങ്ങൾ സംബന്ധിച്ച് ചീഫ് ഐക്ടടറി സംസ്ഥാന പോലീസ് മേധാവി എന്നിവർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടീക്കാറാം മീണ ചർച്ച നടത്തി

പ്രിസൈഡിങ് ഓഫീസർ ഫസ്റ്റ് പോളിങ് ഓഫീസർ എന്നീ ഉദ്യോഗസ്ഥർക്കായി സംഘടിപ്പിച്ച പരിശീലന ക്ലാസിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നവർക്കായി നാളെ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അറിയിച്ചു

കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്രസിങ്ങ് തോമർ വാണിജ്ച് മന്ത്രി പീയുഷ് ഗോയൽ എന്നിവരാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്നത്

പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് നസറുദ്ദീൻ എളമരത്തിന്റെട്ട മലപ്പുറത്തെ വീട്ടിലും കോഴിക്കോട്ടെ സംസ്ഥാനക്കമ്മിറ്റി ഓഫീസിലും പരിശോധന നടന്നു പരിശോധനയക്കെതിരെ എസ്ഡിപിഐ പ്രതിഷേധ പ്രകടനം നടത്തി ഹൈക്കോടതി മന്ത്രി കടകംപളളി സുരേന്ദ്രന്റെ ഭാര്യ കോവിഡ് ചട്ടങ്ങൾ ലംഘിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ സംഭവത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി പൊതു ജനങ്ങൾക്ക് അനുമതി ഇല്ലായിരുന്ന സമയ്ത്താണ് മന്ത്രിയുടെ ഭാരൃ നാലമ്പലത്തിൽ പ്രവേശിച്ചതെന്ന് ഹർജിക്കാരൻ ആരോപിച്ചു